രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പത്ത് ലക്ഷം പേർക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകുന്നതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ

കോവിഡ് പ്രതിരോധത്തിൽ മികച്ച ഫലം കണ്ടതായി കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ

വിശദാംശങ്ങളുമായി കൃഷ്ണ

മാനവരാശി കോവിഡ് എന്ന വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഇക്കാലത്ത് അതിനെ പ്രതിരോധിക്കാനും ആഗോളതലത്തിൽ ഐക്യദാർഢ്യം വളർത്താനും ചേരിചേരാ പ്രസ്ഥാനത്തിനാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

കോവിഡിനെതിരെ ലോകമൊന്നാകെ പോരാടുന്ന ഈ സമയത്തുപോലും സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ചെലവ് കുറഞ്ഞ മരുന്നുകളുടെ ഉത്പാദന കേന്ദ്രമായി പരക്കെ അറിയപ്പെടുന്ന രാഷ്ട്രമാണ് ഇന്ത്യ

കോവിഡ് ശ്രമങ്ങൾ രാജ്യത്ത് പൂരോഗമിക്കുകയാണെന്നും ശ്രീ

ജനാധിപത്യം അച്ചടക്കം നിശ്ചയദാർഢൃം എന്നിവയിലൂടെ ശക്തമായ പൊതുജന മൂന്നേറ്റം എങ്ങനെ സാധ്യമാക്കാം എന്ന് ഈ കോവിഡ് കാലത്ത് ഇന്ത്യ തെളിയിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്

അബുദാബി റിയാദ് ദോഹ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേയ്ക്കും ദുബായിയിൽ നിന്ന് കോഴിക്കോടുമാണ് ആദ്യ ദിവസം വിമാനങ്ങൾ എത്തുന്നത്

ചീഫ് സെക്രട്ടറി സംസ്ഥാന പൊലീസ് മേധാവി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു തിരികെ എത്തുന്നവരുടെ കാറൻറൈനും ചികിത്സാ സൌകര്യങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു

എസ് മഗർ ഐ

എസ് ശാർദൂൽ എന്നീ കപ്പലുകൾ ഇന്നലെ രാത്രി പുറപ്പെട്ടുവെന്ന് നാവികസേന കൊച്ചിയിൽ അറിയിച്ചു പ്രവാസികളുമായി കപ്പലുകൾ കൊച്ചിയിലാണ് തിരിച്ചെത്തുക

വിമാനങ്ങളിലും കപ്പലുകളിലുമായി യാത്ര ക്രമീകരിക്കുന്നതിന് പ്രോട്ടോക്കോൾ എംബസികളും ഹൈക്കമ്മീഷനുകളുമാണ് തിരിച്ചുവരേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നത്

തിരിച്ചെത്താൻ താല്പരൃം പ്രകടിപ്പിച്ചവരുടെ പട്ടിക അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും തയ്യാറാക്കി വരികയാണ്

തുടർച്ചയായ രണ്ടാം ദിവസമാണ് പുതിയ കോവിഡ് കേസുകൾ ഉണ്ടാവാതിരുന്നത്

ലോക്ഡൌൺ കാലയളവിൽ ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ ചില സംസ്ഥാനങ്ങളിൽ റേഷൻകിറ്റ് പാകം ചെയ്ത ആഹാരം സൌജന്യ മരുന്നൂകൾ എന്നിവയും ആവശ്യക്കാർക്ക് ലഭൃമാക്കിയിരുന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ ശാസ്ത്രജ്ഞരും അനുബന്ധ സ്ഥാപനങ്ങളും പ്രശ്നപരിഹാരത്തിന് മികിച്ച പരിഗണന നൽകുന്നത് ശ്രദ്ധേയമാണെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ ചൂണ്ടിക്കാട്ടി

കൂടുതൽ ലബോറട്ടറികൾക്ക് അനുമതി നൽകുന്നതിലൂടെ പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ ഐസിഎംആർ ശ്രമിച്ചു വരികയാണ്

രാജ്യത്ത് ചിലവ് വർദ്ധിപ്പിച്ച് മാത്രമേ സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കാനാകുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ സംഭാഷണത്തിനിടെ അദ്ദേഹം വ്യക്തമാക്കി താല്ക്കാലിക റേഷ്ട്രുകാർഡുകൾ വിതരണം ചെയ്യുന്നത് വഴി പാവപ്പെട്ടവർക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്ക്ാട്ടി